പ്രാദേശിക സാമ്പത്തിക പ്രോത്സാഹിപ്പിക്കാനും കർഷകരെ സഹായിക്കാനും ലക്ഷ്യമിട്ടുള്ള് രണ്ട് ഓർഡിനൻറസുകൾ രാഷ്ട്രപതി പുറപ്പെടുവിച്ചു

ഇന്ത്യയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം രണ്ടേകാൽ ലക്ഷം കടന്നു

കാർഷികോല്പ്പന്ന വ്യാപാര പ്രോത്സാഹനം കാർഷിക ശാക്തീകരണം എന്നീ മേഖലകളിലുള്ള ഓർഡിൻസുകൾക്ക് കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയിരുന്നു വ്യാപാര പ്രോത്സാഹന ഓർഡിനൻസ് നിലവിൽ വരുന്നതോടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ രാജൃത്ത് എവിടെ വേണമെങ്കിലും വിൽക്കാൻ കഴിയും കർഷിക ശാക്തീകരണ ഓർഡിനൻസ് കർഷകർക്ക് നേരിട്ട് അവർക്കിഷ്ടമുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് അവസരമൊരുക്കുന്നു ഓർഡിനൻസിലെ പരിഷകരണ നടപടികൾ നടപ്പാക്കാൻ പിന്തുണ അഭ്യർത്ഥിച്ചു കൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിങ് തോമർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തെഴുതി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

അതിർത്തി വൃക്തമായി നിർവചിച്ചിട്ടില്ലാത്തതിനാൽ യഥാർത്ഥ നിയന്ത്രണ രേഖയെന്നാണ് ഇതിനെ വിളിക്കുന്നത്

ലഡാക്കിൽ നിലനിൽക്കുന്ന സംഘർഷസമാനമായ സാഹചരൃത്തിലാണ് ഇന്ന് ചർച്ച ആരംഭിക്കുന്നത്

ഇരു രാജൃങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും നിലവിലെ സംഭവവികാസങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തു

ഉദ്യോഗസ്ഥ പരിശീലന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ഡിജിറ്റൽ ബുക്ക് ആയ ആരംഭ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രകാശനം ചെയ്യുകയായിരുന്നു നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ അദ്ദേഹം

ഏജൻസി നിലവിൽ വന്നാലുടൻ നോൺ ഗസറ്റഡ് തസ്തികകളിലേക്ക് ഓൺലൈനായി പൊതുയോഗൃതാ പരീക്ഷ നടത്തും എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നും ശ്രീ ് ജിതേന്ദ്ര സിങ് പറഞ്ഞു

നേരത്തെ ആരോഗൃപ്രവർത്തക്കും കോവിഡ് രോഗികളും അവരുടെ പരിചരണത്തിൽ ഏർപ്പെടുന്നവരും മാത്രം മാസ്ക് ധരിച്ചാൽ മതിയെന്നായിരുന്നു ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരുന്നത്

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തദ്ദേശ ഭരണകൂടത്തെ സഹായിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ സഞ്ജയ് സേത്തി പറഞ്ഞി ഇതു കൂടാതെ സമീപ പഞ്ചായത്തുകളിൽ പോർട്ട് ട്രസ്റ്റ് അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുമുണ്ട്

കേശാലങ്കാര മേഖലയിൽ പണിയെടുക്കുന്ന നേത്രയുടെ അച്ഛൻ ഇതിനായി അഞ്ച് ലക്ഷം രൂപയാണ് ചെലവിട്ടത്

രോഗികളുടെ എണ്ണത്തിൽ അമേരിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം ആറ് ലക്ഷം കവിഞ്ഞു

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്താണ്

ഇത് തുടർച്ചയായ ആറാം ദിവസമാണ് രോഗിയുടെ എണ്ണം ആയിരം കടക്കുന്നത്

അതേസമയം സ്വർണ കരുതൽ ശേഖര മൂല്യത്തിൽ ്തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തുകയാണ്

കോവിഡാനന്തര കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കായി സംസ്ഥാന സർക്കാരുമായി കൈകോർത്ത് കേരള സർവകലാശാല നടത്തുന്ന ഹരിതാലയം പദ്ധതിയുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരള സർവകലാശാല പോലെ ഒരു ഉന്നതവിദ്യാഭ്യാസ സ്ഥാപനം തന്നെ ഇത്തരമൊരു ബൃഹദ് പദ്ധതിയുമായി കൈകോർക്കുമ്പോൾ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാനാകും കാർഷിക ് പ്രവർത്തനങ്ങളെക്കുറിച്ചും കാർഷിക മേഖലയെ കുറിച്ചും കൂടുതൽ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഇത്തരമൊരു സ്വാഭാവികമായും വഴിവെക്കുമെന്നും മുഖൃമന്ത്രി പറഞ്ഞു

കേരളത്തിലെ സഹകരണ സംഘങ്ങൾ മുഖേന തരിശു ഭൂമിയൽ പച്ചക്കറി ഉത്പാദനം ലക്ഷമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബാലരാമപുരത്തെ ട്രിവാൻഡ്രം സ്പിന്നിങ്ങ് മിൽ വളപ്പിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു